വയനാട് മലപ്പുറം പത്തനംതിട്ട ് കൊല്ലം ആലപ്പുഴ എന്നീ ജില്ലകളിലെ വിവിധ ദുരിതബാധിത പ്രദേശങ്ങൾ ് സന്ദർശിച്ച തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായും മുതിർന്ന ഉദ്യോഗസ്ഥരുമായും കൂടിക്കാഴ്ച നടത്തി

കാലാവസ്ഥ മുന്നറിയിപ്പ് കേരളത്തിൽ അടുത്ത രണ്ടു ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്

തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യും കാലാവസ്ഥ ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ വയനാട് ഇടുക്കി ജില്ലകളിൽ നാളെയും മറ്റെന്നാളും ദുരന്ത നിവാരണ അതോറിറ്റി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ നാളെയും പാലക്കാട് തൃശ്ശൂർ ജില്ലകളിൽ മറ്റെന്നാളും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു

ഒഡീഷ തീരത്ത് രൂപംകൊണ്ട ചുഴലിക്കാറ്റിന്റെ പ്രഭാവമാണ് കേരളത്തിൽ മഴയ്ക്ക് ഇടയാക്കിയതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു